പ്രധാനമന്ത്രിയുടെ വിമർശനം ഉത്തർ പ്രദേശിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു

തയ്യാറാകണമെന്ന് ഇന്ത്യ

തീവ്രവാദികളെ സഹായിക്കുന്ന നിലപാട് തുടർന്നാൽ പാകിസ്ഥാന് വലിയ വില ന് നൽകേണ്ടിവരുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്

സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ

സംപ്രേഷണശൃംഖല വ്യാപിപ്പിച്ച് ദൂരദർശൻ

ദൂരദർശന്റെ സൌജന്യ ചാനലുകൾ ലഭ്യമാകും

മുൻ ഗവൺമെന്റിന്റെ കാലയളവിൽ തീവ്രവാദവിരുദ്ധ പോരാട്ടത്തിന് സേനക്ക് സ്വാതന്ത്രൃം നൽകിയിരുന്നില്ല എന്നാൽ ഈ ഗവൺമെന്റ് സേനക്ക് അനുവാദംനൽകി പാക്കിസ്ഥാന്റെ സഹായത്തോടെ ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുമ്പേ ആഭ്യന്തര മന്ത്രിയെ മാറ്റുക മാത്രമാണ് മുൻഗവൺമെന്റ് ചെയ്തിരിക്കുന്നതെന്നും പ്രധാനമന്ത്രിക്കുകുറ്റപ്പെടുത്തി ഇത്തരം സന്ദർഭങ്ങളിൽ ആഭ്യന്തരമന്ത്രിമാട്ട്രി്ക് ് മാറ്റുന്നതാണോ ഒരു ഗവൺമെന്റിന്റെ നയമെന്ന് ച്ചേദ്രിച്ച് ശ്രീ മോദി ബലാക്കോട്ട് മിന്നാലാക്രമണത്തിന് ത്രുളിപ്പ് ചോദിച്ച പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ചു ഉത്തർപ്രദേശിലെ നോയിഡയിൽ പൊതുപരിപാടിയിൽ സ്സാരിക്കവെയാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് നോയിഡയിലും കാൺപൂരിലും നിരവധി വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്

വോയിസ് നേരത്തെ ഗ്രേറ്റർ നോയിഡയിൽ പണ്ഡിറ്റ് ദിൻദയാൽ ഉപാധ്യയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു അവിടെ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായയുടെ പ്രതിമ അനാഛാദനവും അദ്ദേഹം നിർവഹിച്ചു ഡൽഹി മെട്രോ റെയിലിന്റെ നോയ്ഡ ഇലക്ട്രോണിക് നഗര പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു നോയ്ഡയിലെ ജനങ്ങൾക്ക് ഡൽഹി മെട്രോയുടെ സേവനം ലഭ്യമാക്കുന്നതാണ് പദ്ധതി

മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലുള്ള വികസന പദ്ധതിയുടെ കേന്ദ്രമായി നോയിഡ മാറിയതായി ശ്രീ

സാമ്പത്തിക വികസനത്തിനു പുറമേ നോയിഡയിലേയും ഗ്രേറ്റർ നോയിഡയിലേയും യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന നിരവധി പദ്ധതികൾ ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രമന്ത്രി മഹ്നീഷ് ശർമ്മ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനങ്ങൾ ഐന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാർവാണി

പുതിയ ചിന്തയിലൂടെ പുതിയ പാക്കിസ്ഥാൻ സാധ്യമായി എന്നാണ് അവരുടെ വാദം ഇത് ശരിയാകണമെങ്കിൽ സ്വന്തം മണ്ണിലെ ഭീകർക്കെതിരെ പാക്കിസ്ഥാൻ പുതിയ നടപടികൾ കൈകൊള്ളണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു വാക്കുകളിലൂടെയല്ല മറിച്ച് ഭീകർക്കെതിരെയുള്ള പ്രവർത്തിയിലൂടെയാണ് പാക്കിസ്ഥാനെ ഇനി വിലയിരുത്തുക എന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

മംഗലുരൂവിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

ബലാക്കോട്ട് ആക്രമണത്തിന്റെ വിവരങ്ങൾ ഗവൺമെന്റിന് പുറത്തുവിടാന്റിക്ലെന്നും ശ്രീരാജ്നാഥ് സിംഗ് പറഞ്ഞു

കർണാടകയിൽ ഹവേരിയിലെ പൊതു സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പുൽവാമ ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്വം ആരുടേതാണെന്ന് പ്രധാമന്ത്രിയാണ് പറയേണ്ടത് ഡോക്ലാമിൽ ചൈനീസ് സൈനൃം കടന്നു കയറിയതിന്റെ സാഹചരൃം പ്രധാനമന്ത്രി വൃക്തമാക്കണമെന്നും ശ്രീ രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു

ന്യൂഡൽഹിയിൽ പൊതുസേവന കേന്ദ്രത്തിലൂടെ ആയൂഷ്മാൻ ഭാരത് സേവനം എന്ന വിഷയത്തിൽ നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അഞ്ച് കോടി കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകാൻ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലുടെ സാധ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു

മ്യിഷ്ട്രപ്തി ഭവനിൽ ഇന്ന് വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൂരുന്നുകൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകിയാണ് ് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചത്

കേരളത്തിലെ ഇതര സംസ്ഥാനക്കാരുടെ കുട്ടികൾക്ക് നാളെ മുതൽ മൂന്നു ദിവസങ്ങളിലായി പോളിയോ തുളളിമരുന്ന് നൽകും

ഇതിനുപുറമേ ആരോഗൃകേന്ദ്രങ്ങളിൽ നിന്നും പോളിയോ മരുന്നു നൽകും

ജെ പി കോൺഗ്രസ് എസ്

പി സി

ദേശീയ സംസ്ഥാനതലത്തിലുള്ള സഖ്യനീക്കങ്ങളും തെരഞ്ഞെടുപ്പ് യോഗങ്ങളും പുരോഗമിക്കുകയാണ്

വോയിസ് ലോക്സഭ തെരഞ്ഞെടുപ്പില്ലേക്കുള്ള ആർജെഡി സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ ്പാർട്ടി അദ്ധ്യക്ഷൻ ലാലു പ്രസാദിനെ ചുമതലപ്പെടുത്തി പൊട്നയിൽ റാബറി ദേവിയുടെ വസതിയിൽ ചേർന്ന പ്യാർട്ടി പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനം

വടക്കൻ ആന്ധ്രയിൽ നിർണായക സ്വാധീനമുള്ള നേതാവായ ശ്രീ

കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സി

ഡി എഫിലെ നാല് എം

എ മാരും ആറ് സിറ്റിംഗ് എം

നാല് സീറ്റുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നേരത്തെതന്നെ സി

മുസ്ലീ ലീഗിന് വേണ്ടി പി

കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും ഇ

മുഹമ്മദ് ബഷീർ പൊന്നാനിയിലും വീണ്ടും മത്സരിക്കും

ചത്തീസ്ഗഢ് ഗ്രോപ്പ ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഝാർഖണ്ഡ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് ത്രിപുര ഉത്തൂർടൂഖിണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പുതിയ ചാനലുകൾ ലൂഭ്യമാകുന്നത് പ്രസാർഭാരതി പുതിയ ഡി ഡി ചാനലുകൾ ആരംഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം രേഖപ്പെടുത്തി

ഇന്ത്യയുടെ അപേക്ഷ ബ്രിട്ടന്റെ പരിഗണനയിലാണ് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ കേന്ദ്രഗവൺമെന്റ് ഇത് സംബന്ധിച്ച നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ബ്രിട്ടന്റെ ഭാഗത്ത് നിന്നും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു എൻഫോഴ്സ്മെന്റും സിബിഐയുമാണ് നീരവ്മോദിയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്

റാഞ്ചിയിൽ നിന്ന് ആരയിലേക്ക് പോകുകയായിരുന്ന കാറാണ് എതിരേ വന്ന ട്രക്കുമായി കൂട്ടിയിടിച്ചത്

മരിച്ചവരിൽ മൂന്നു വനിതകളും രണ്ടു കുട്ടികളും ഉൾപ്പെടുന്നു

അന്തർസംസ്ഥാന പാതക്കളും പോലീസ് നിരീക്ഷണത്തിലാണ്

നാല് മേഖലകളിലായി നടക്കുന്ന ബിജെപിയുടെ മധ്യമേഖല പരിവർത്തനയാത്രയാണ് മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ പരിവർത്തനയാത്ര സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

നാടിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പാരമ്പരൃം കലാലയങ്ങൾക്ക് ഉണ്ട് ദേശീയ തലത്തിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിൽ കേരളത്തിന് പ്രാതിനിധൃമില്ലാത്ത അവസ്ഥയുണ്ട്

പൊതു വിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി മൂന്നരില്ലക്ഷത്തോളം പേരാണ് പൊതുവിദ്യാലയങ്ങളിൽ എത്തിയത്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

നാളത്തെ മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കാനാകും ഇന്ത്യ ശ്രമിക്കുക